നയിക്കുന്നത് ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ പാലിക്കുന്നതിൽ ഒരു അശ്രദ്ധയും ഉണ്ടാകാൻ പാടില്ലെന്നൂം പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായി മൻകി ബാത്തിൽ

സാമ്പത്തിക വർഷം തന്നെപൂർണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

രാജ്യത്തെ എല്ലാ പൌരന്മാരും ഒരേ ലക്ഷ്യത്തിനായി ദിശാ ബോധത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും നിർവ്വഹിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് വലിയ പങ്കുണ്ട്

രാജ്യത്തെ കൊറോണ മുക്തമാക്കാൻ രാപകൽ അധ്വാനിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യപ്രവർത്തകർ തുടങ്ങിയവരെ അക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി ഉറപ്പാക്കുന്ന ഓർഡിൻസ് പുറപ്പെടുവിച്ച കാര്യവും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് നിരവധി വിദേശ രാജൃങ്ങളിലേക്ക് ഇന്തൃ മരുന്നുകൾ കയറ്റി അയക്കുകയും ആ രാഷ്ട്രങ്ങൾ ഇന്ത്യയെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെങ്ങും ഇപ്പോൾ ഭാരതത്തിന്റെ യോഗ ആയുർവേദം എന്നിവയെ പ്രധാന്യത്തോടെ വീക്ഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പൂ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നതിലും ലോക്ഡൌണ്ടിന്റെ ഭാഗമായി വീടിനു പുറത്തിറങ്ങാതിരിക്കുന്ന കാര്യത്തിലും കൂടുതൽ ജാഗരൂകരാകണമെന്നും പ്രധാനമുന്നി നിഷ്കർഷിച്ചു കോവിഡ് ബാധ പൂർണ്ണമായും ഭേദമാകേണ്ടതുണ്ടെന്നും അതുകൊണ്ട് പ്രതിരോധ്യ് മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിൽ പ്രാദേശിക തലത്തിൽ ഏപ്പിടെയും ഒരു അശ്രദ്ധയും ഉണ്ടാകാൻ പാടില്ലെന്നും പ്രധാനമന്ത്രി് ഓർമ്മിപ്പിച്ചു

ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികളും മെയ് മൂന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ഡൌൺ രാണ്ടം ഘട്ടത്തിനു ശേഷം സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ചു ചെയ്യും

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്

കൊല്ലത്തും കോട്ടയത്തിൽ മൂന്ന് പേർക്ക് വീതവും കണ്ണൂരിൽ ഒരാൾക്കുമാണ് ഇന്നല്ലിര്യോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇന്നലെ ഏഴ് പ്പേർ ർോഗമുക്തി നേടി

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യവിദഗ്ധർ പങ്കെടുത്ത കോവിഡ് രാജ്യാന്തര പാനൽ ചർച്ച തിരുവനന്തപുരത്ത് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

ഇവ നിലവിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതലയോഗം വിലയിരുത്തി

ലോക്സഭാ സ്പീക്കർ ഓം ബിർലയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിരവധി സംസ്ഥാന നിയമസഭകളിൽ അടിയന്തിര സേവനങ്ങൾക്കായി കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് രാജസ്ഥാൻ ഹരിയാന ഒഡീഷ ഡൽഹി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചത് കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ എംപി മാർക്കും എംഎൽഎ മാർക്കും തങ്ങളുടെ കർത്തവൃങ്ങൾ കാര്യക്ഷമമായി നിറവേറ്റാൻ ഇത് സഹായപ്രദമാകും

കൂടുതൽ ലബോറട്ടറികൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഐ സി എം ആർ പരിശോധനാ സൌകര്യം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലെ ഈ സംഘം ഇന്ന് അഹമ്മദാബാദിലെയും സൂററ്റിലെയും ഹോട്സ്പോട്ടുകളിൽ സന്ദർശനം നടത്തുകയാണ്

ജില്ലാ കളക്ടർമാർ പോലീസ് കമ്മീഷണർമാർ തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി